എസ് സി പരീക്ഷകളിൽ മലയാളത്തിലും ചോദൃം വേണമെന്ന ആവശ്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയർമാനുമായി രാവിലെ ചർച്ച നടത്തും സംസ്ഥാനങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെ സമ്മേളനം ഇന്ന് കോവ ളത്ത് ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തുകളഞ്ഞ നടപടിക്കെ തിരെ സമർപ്പിച്ച ഹർജികൾ ഇന്ന് സുപ്രീംകോടതിയിൽ പാല നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ പ്രചാരണം സജീവം മുന്നണി നേതാക്കൾ മണ്ഡലത്തിൽ

കേരളത്തിലെ പ്രളയവും ഉരുൾപൊട്ടലും മലയിടിച്ചിലുംമൂലമുണ്ടായ നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ആദ്യ കേന്ദ്രസംഘം ഇന്നെത്തും കേന്ദ്ര ആഭ്യന്തര ജോയിന്റ് സെക്രട്ടറി ശ്രീപ്രകാശ് നേതൃത്വം നൽകുന്ന സംഘം രണ്ടായിത്തിരിഞ്ഞ് ഇന്ന് കൊച്ചിയിൽ സന്ദർശനം നടത്തും നാളെ മലപ്പുറം ആലപ്പുഴ ജില്ലകളും ബുധനാഴ്ച വയനാട് എറണാകു ളം തൃശൂർ ജില്ലകളും വ്യാഴാഴ്ച കണ്ണൂർ ജില്ലയിലും സംഘം എത്തും

സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാ നത്തിൽ മറ്റൊരു വിദഗ്ധസംഘം കേരളത്തിൽ എത്തി പരിശോധന നട ത്തിയശേഷമായിരിക്കും കേന്ദ്ര സഹായത്തിന്റെ കാരൃത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക

എസ്

പരീക്ഷകളിൽ ഇംഗ്ലീഷിനൊപ്പം മലയാളത്തിലും ചോദ്യം വേണം എന്ന ആവശൃത്തിൽ മുഖൃമന്ത്രി പിണറായി വിജയൻ ഇന്ന് പി

യുമായി ചർച്ച നടത്തും രാവിലെ ഒൻപതരയ്ക്ക് മുഖ്യ മന്ത്രിയുടെ ഓഫീസിൽ പി

സി ചെയർമാൻ എം

സക്കീറുമാ യാണ് ചർച്ച

എസ്

കമ്മി ഷൻ അംഗങ്ങളെ ഗവൺമെന്റ് നിർദ്ദേശങ്ങൾ അറിയിച്ചശേഷം പ്രശ്ന ത്തിൽ അന്തിമ തീരുമാനം എടുക്കും ഈ ആവശൃം ഉന്നയിച്ച് ഐക്യമലയാള പ്രസ്ഥാനം പി

സംസ്ഥാനങ്ങളിലെ ടൂറിസം മന്ത്രിമാരുടെയും മുതിർന്ന ഉദ്യോഗ സ്ഥരുടെയും സമ്മേളനം ഇന്ന് കോവളത്ത് നടക്കും മുഖ്യമന്ത്രി പിണ റായി വിജയൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും ഇന്ത്യയെ വിനോദ സഞ്ചാരങ്ങളുടെ ലോക്കത്തെ മികച്ച ലക്ഷ്യകേന്ദ്രമാക്കാൻ സമ്മേളനം നിർദ്ദേശങ്ങൾ തയ്യാറാക്കും വിനോദ സഞ്ചാരത്തിലൂടെ വരുമാന മാർഗ ങ്ങൾ വർധിപ്പിക്കുന്നതിന് മുന്നോട്ടുവെച്ച ശുപാർശകളും സമ്മേളനം പരി ഗണിക്കും കേന്ദ്ര മോട്ടോർവാഹനനിയമം നടപ്പാക്കുന്നതിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ തിരുവനന്തപുരത്ത് രാവിലെ ഉന്നതതലയോഗം ചേരും

മന്ത്രി എ

ചില നിയമലംഘനങ്ങൾക്ക് പിഴ കുറയ്ക്കുന്നതിന്റെ സാധ്യത യോഗം ചർച്ച ചെയ്യും മരടിലെ അനധികൃത ഫ്ളാറ്റ് നിർമാണവുമായി ബന്ധപ്പെട്ട് ജൂഡീ ഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് മരട് മാർച്ച് നട ത്തും

ഐ

സി ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും ഫ്ളാറ്റിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ അനുവദിച്ച സമ യപരിധി ഇന്നലെ വൈകീട്ട് അവസാനിച്ചു

നാളെ ഉച്ചകഴിഞ്ഞ് തിരുവനന്തപുരത്ത്ചേരുന്ന സർവകക്ഷി യോഗം സുപ്രീംകോടതിവിധി വിലയിരുത്തി തുടർ നടപടികൾക്ക് രൂപം നൽകും യോഗത്തിനുശേഷം ബുധനാഴ്ച ഒഴിപ്പിക്കലിനെതിരേ ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഫ്ളാറ്റ് ഉടമകളുടെ തീരുമാനം വയനാടിന്റെ വികസനത്തിന് ഹരിത ഫണ്ട് സമാഹരണവും വിനിയോഗവും വേണമെന്ന് മന്ത്രി ഡോ

പരിസ്ഥിതിയെ മറന്ന് ഇനിയൊരു വികസനം കേരളത്തിന് സാധ്യമല്ലെന്നും മന്ത്രി പറഞ്ഞു വയനാട്ടിൽ നൂറ് ഏക്കർ സ്ഥലം ഏറ്റെ ടുത്ത് കാപ്പി സംസ്കരണ ഫാക്ടറി സ്ഥാപിക്കുമെന്നും അദ്ദേഹം അറി യിച്ചു മലബാർ കോഫി പദ്ധതി യാഥാർഥ്യമാക്കുന്നതിന്റെ ഭാഗമായി കൽപ്പറ്റയിൽ സംഘടിപ്പിച്ച ദിദിന ശിൽപ്പശാല ഉദ്ഘാടനം ചെയ്യുകയാ യിരുന്നു മന്ത്രി

ജമ്മുകശ്മീരിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയ നടപടിയും ഹർജികളിൽ ചോദ്യം ചെയ്യുന്നുണ്ട് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് വാദം കേൾക്കുന്നത് കോൺഗ്രസ് നേതാവും ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രിയുമായ ഗുലാം നബി ആസാദ് കുടുംബാംഗങ്ങളെ കാണാൻ അനുവദിക്കണമെന്ന് ആവ ശ്യപ്പെട്ട് നൽകിയ ഹർജിയും ഇതോടൊപ്പം പരിഗണിക്കും രാജ്യത്തെ പ്രമുഖ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒക്ടോബർ എട്ടിന് ബോംബ് സ്ഫോടനം നടത്തുമെന്ന് കാണിച്ച് പാകിസ്താൻ ഭീകര സംഘ ടന ജയ്ഷെ മുഹമ്മദ് ഭീഷണി ഉയർത്തി ഹരിയാനയിലെ റോത്തക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് ഹിന്ദിയിൽ എഴുതിയ കത്ത് ലഭിച്ചത് ചെന്നൈ ബെംഗളുരു മുംബൈ ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷനുകൾ ആക്രമിക്കുമെന്ന കത്ത് മസൂദ് അഹമ്മദിന്റെ പേരിലാണ് തയ്യാറാക്കിയി രിക്കുന്നത് പ്പാസ്റ്റിക് മാലിന്യ ശേഖരണത്തിന് റെയിൽവേയുടെ വിപുലമായ ശ്രമ ദാൻ പരിപാടി നാളെ ആരംഭിക്കും

അടുത്തമാസം രണ്ടി നകം നാലായിരത്തിലധികം സ്റ്റേഷനുകളിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ക്രഷിങ് മെഷിനുകൾ സ്ഥാപിക്കാനും റെയിവേ മന്ത്രാലയം നിർദ്ദേശം നൽകി

ഇന്തൃൻസേന പാകിസ്താന്റെ പ്രകോപനപരമായ ആക്രമണങ്ങ ളോട് പരമാവധി സംയമനവും നിയന്ത്രണവും പാലിച്ചതായി വിദേശ കാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു നിയന്ത്രണ രേഖയിലും രാജ്യാ ന്തര അതിർത്തിയിലും ശാന്തിയും സമാധാനവും പാലിക്കാൻ ഇന്ത്യൻസേന ശ്രമിച്ചതുകൊണ്ടാണ് കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാനായതെന്നും രവീഷ്കുമാർ അഭിപ്രായപ്പെട്ടു പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിൽ മൂന്നു മുന്നണി സ്ഥാനാർത്ഥികളും മണ്ഡലപര്യടനും തുടരുന്നു

ഡി എഫ് സ്ഥാനാർത്ഥി ജോസ് ടോമിനു വേണ്ടി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ പ്രചരണ രംഗത്തുണ്ട്

ഡി എഫ് സ്ഥാനാർത്ഥി മാണി സി കാപ്പന്റെ പ്രചരണത്തിനായി സി

എം സംസ്ഥാന സെക്രട്ടറി കൊടിയേരി ബാലകൃഷ്ണനും സി

സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമെത്തും

ശ്രീധരൻ പിള്ളയും സംസ്ഥാന ഭാരവാഹികളും എൻ

എ സ്ഥാനാർത്ഥി എൻ ഹരിയുടെ പ്രചരണരംഗത്ത് സജീവമാണ് തിരഞ്ഞെടുപ്പു നടപടിക്രമങ്ങളും പുരോഗമിക്കുന്നു പാലായിൽ എത്തിച്ച വോട്ടിംഗ് മെഷീനുകളിൽ ഇന്ന് ബാലറ്റ് പേപ്പർ സെറ്റ് ചെയ്യും

സി

വിട്ടതുകൊണ്ട് പാലായിൽ ഒന്നും സംഭവിക്കില്ലെന്നും തെരഞ്ഞെടുപ്പ് കാലത്തു ണ്ടാകുന്ന നാടകത്തിന്റെ ഭാഗമാണെന്നും മന്ത്രി എ

ശശീന്ദ്രൻ കോഴിക്കോട്ട് പറഞ്ഞു

ഡി എഫിലെ പോലെ എൽ

എഫിലും പ്രശ്നമുണ്ടെന്ന് വരുത്തി തീർക്കാൻ ചിലർ ചട്ടുകമായി പ്രവർത്തിക്കുകയാണ് പാർട്ടി വിട്ടവർപുറത്ത് തന്നെയാണെന്നും മന്ത്രി വ്യക്തമാക്കി

ഹിമാചൽപ്രദേശിലെ ധർമശാലയിൽ ഇന്നലെ രാത്രി ഏഴിന് മത്സരം തുടങ്ങാനായിരുന്നു തീരുമാനം എന്നാൽ ടോസ് ചെയ്യാൻപോലും അവസരം നൽകാതെ മഴ പെയ്യുകയായിരുന്നു ഇനി ബുധനാഴ്ച മൊഹാലിയിലാണ് രണ്ടാം മത്സരം ഇന്തൃയുടെ കവീന്ദർ ബിസ്തും സൻജീദും ലോക പുരുഷ ഗുസ്തി ചാമ്പ്യൻഷിപ്പിന്റെ പ്രീ ക്വാർട്ടറിൽ കടന്നു

ഉഡുപ്പിയിൽ ദക്ഷിണമേഖല ജൂനിയർ അത്ലറ്റിക്സ് ചാമ്പൃൻഷി പ്പിൽ കേരളത്തിന് രണ്ടാംസ്ഥാനം തമിഴ്നാടിനാണ് ഒന്നാംസ്ഥാനം

ആറൻമുള ഉത്രട്ടാതി ജലമേളയിൽ എ ബാച്ചിൽ മേലൂക്കര പള്ളി യോടവും ബി ബാച്ചിൽ വൻമഴി പള്ളിയോടവും ജേതാക്കളായി

വേഗം ഒഴി വാക്കി ആറൻമുള ശൈലിയിൽ വള്ളം തുഴഞ്ഞവരെയാണ് ജേതാക്ക ളായി പ്രഖ്യാപിച്ചത് ഓണാവധിക്കുശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ ഇന്ന് തുറക്കും ഗവൺമെന്റ് ഓഫീസുകൾ എട്ട് ദിവസത്തെ തുടർച്ചയായ അവധിക്കു ശേഷമാണ് ഇന്ന് തുറക്കുന്നത്

ഡി

ബത്തേരി നിയോജകമണ്ഡലം നേതൃയോഗം ആവശ്യപ്പെട്ടു ദേശീയപാതക്ക് ബദലായി മറ്റൊരു പാതയുമില്ല എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം കോടതിയിൽ സമർപ്പിക്കുന്ന റിപ്പോർട്ട് കേരളത്തിന് അനുകൂലമാവുമെന്ന് ഉറപ്പാക്കാൻ ബി ജെ പി നേതൃത്വവും തയ്യാറാവണമെന്ന് യോഗം നിർദ്ദേശിച്ചു രാജൃത്തിനുവേണ്ടി മൂന്ന് യുദ്ധങ്ങളിൽ പങ്കെടുത്ത ഹവിൽദാർ തൃച്ചംബരം സി

കൃഷ്ണൻനായർ നിര്യാതനായി

സംസ്കാരം വൈകീട്ട് കോട്ടക്കുന്ന് സമുദായ ശ്മശാനത്തിൽ നടക്കും കാസർകോട് തലപ്പാടിമുതൽ കാലിക്കടവ്വരെ ദേശീയപാതയുടെ തകർച്ച പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാസർകോട് എം

കാസർകോട് പ്രസ്ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് എം

ഇക്കാര്യം അറിയിച്ചത് ഓണക്കാല സഞ്ചാരികൾക്ക് ദൃശ്യ വിസ്മയമൊരുക്കി ഇടുക്കിയിലെ കല്ലാർകുട്ടി ജലസംഭരണിയിൽ ജലമേള നടത്തി മുതിരപ്പുഴ ടൂറിസം ഡവലപ്പ്മെന്റ് ആൻഡ് കൾച്ചറൽ സെന്ററിന്റെയും കെ എസ് ഇ ബി ഹൈഡൽ ടൂറിസ്ത്തിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപിച്ചത് ഇതോടൊപ്പം മൺസൂൺ ടൂറിസം പരിപാടികളും ഓണാഘോഷവും നടന്നു ഒരു ഭാഷയെ സംരക്ഷിക്കാൻ അതേ ഭാഷക്കാരോട് തന്നെ സമരം ചെയ്യേണ്ടിവരുന്ന ഗതികേട് മലയാള ഭാഷയ്ക്കല്ലാതെ മറ്റൊരു ഭാഷയ്ക്കും ഉണ്ടാവില്ലെന്ന് കവി മാധവൻ പുറച്ചേരി പറഞ്ഞു മാതൃഭാഷാ സംരക്ഷണ ത്തിനായി പയ്യന്നൂർ മലയാളഭാഷാ പാഠശാലയിൽ സംഘടിപ്പിച്ച ഉപവാസം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

തിരുവനന്തപുരത്ത് സമാപന ഘോഷയാത്രയിൽ വിവിധ സംസ്ഥാനങ്ങളിലെ കലാരൂപങ്ങളും നിശ്ചല ദൃശൃങ്ങളും അണിനിരക്കും ഇതോടനുബന്ധിച്ച് ഉച്ചയ്ക്ക് രണ്ട് മുതൽ രാത്രി എട്ടുവരെ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി